ഉത്തർപ്രദേശിൽ ചിത്രകൂടിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പത്ത് മരണം

പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിൽ കർഷകറാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി മിനിമം താങ്ങുവില ഒന്നര ഇരട്ടി വർദ്ധിപ്പിക്കാനായത് ചരിത്ര പരമായ തീരുമാനമാണ്

പരിക്കേറ്റവരെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു

ന്യൂഡൽഹിയിൽ ഐ

രാധാ മോഹൻ സിംഗ് സന്തുഷ്ടി രേഖപ്പെടുത്തി പയർവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിലും രാജ്യം സ്വയം പര്യാപ്തതയിലേയ്ക്ക് മുന്നേറുകയാണ്

ആലപ്പുഴ ജില്ലയിൽ അഞ്ച് താലൂക്കുകളിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്

മംഗലം ഡാമിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഏഴു കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു

മുല്ലപ്പെരിയാർ ഇടുക്കി ഡാമുകൾ തുറക്കേണ്ട സ്ഥിതിയില്ലെന്ന് ജില്ലാകളക്ടർ അറിയിച്ചു

ആയിരം ഹെക്ടർ നെൽവയൽ വെള്ളത്തിനടിയിലായി തിരുവനന്തപുരം ജില്ലയിൽ നാലു വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണമായും നശിച്ചിട്ടുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ ജില്ലാ കളക്ടർമാരുമായി കാലവർഷ കെടുതികൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം പെട്ടെന്നെത്തിക്കുക കൃ എന്നത് ആശ്വാസം പ്രധാനമാണ്

കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും അറബിക്കടലിന്റെ വടക്ക് തെക്ക് പടിഞ്ഞാറൻ മേഖലകളിലും മത്സ്യബന്ധനത്തിനായി പോകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി

പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ കൂടുതൽ പണം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു

ഖസാകിസ്ഥാൻ രണ്ടാമതും റഷ്യ മൂന്നാമതും എത്തി ഇന്ത്യയ്ക്കു വേണ്ടി അമൻ ആകാശ്കുമാർ എസ് ബരുൺ സിംഗ് വിജയ്ദ്ധീപ് നീതു ദിവ്യപവാർ ലളിത എന്നിവരാണ് സ്വർണം നേടിയത്

സ്കൂൾ വിട്ട് വീട്ടിലേക്കു മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപെട്ടതെന്ന് ആകാശവാണി ലക്നൌ പ്രതിനിധി ആറ്റിയിച്ചു

അപകടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ ഏത്യന്ും മണിക്കൂർ ഹൈവേയിൽ ഗതാഗതം തടഞ്ഞു

ഇന്നലെ അഹമ്മദാബാദിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം